ലോക്സഭയിലേക്ക് നാലാംഘട്ട വോട്ടെടുപ്പ് നാളെ

ഭീകരാക്രമണം നേരിട്ട ശ്രീലങ്കയിൽ ഇപ്പോൾ സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ

ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ഈ ഘട്ടത്തോടെ പോളിംഗ് പൂർണ്ണമാവുമാകയാണ്

കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് എസ്

അലുവാലിയ ബാബുൽ സുപ്രിയോ സമാജ്വാദ് പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിമ്പിൾ യാദവ് ചലച്ചിത്രതാരം ഊർമ്മിള മതോങ്കർ ജെ

യു മുൻ വിദ്യാർത്ഥി നേതാവ് കനയ്യ കുമാർ തുടങ്ങിയ പ്രമുഖർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്

വിവിധ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ രാജൃവ്യാപകമായി പ്രചരണത്തിലാണ്

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ബീഹാറിലെ സീതാമർഹി സരൻ എന്നിവടങ്ങളിലും ഉത്തർ പ്രദേശിലെ ബാരാബങ്കി മോഹൻ ലാൽ ഗഞ്ച് എന്നിവിടങ്ങളിലും പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ്സ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഉത്തർ പ്രദേശിലെ ബഹറൈഞ്ചിൽ റാലിയെ അഭിസംബോധന ചെയ്ത ശേഷം റോഡ് ഷോയിൽ പങ്കെടുത്തു

പി നേതാവ് മായാവതി രാജസ്ഥാനിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടർമാരുടെ പിന്തുണയ്ക്കായി പ്രചാരണരംഗത്തുണ്ട്

ജെ പി ആം ആദ്മീ പാർട്ടി കോൺഗ്രസ്സ് എന്നീ പ്രമുഖ പാർട്ടിക്കുളും വിവിധ യോഗങ്ങൾ റോഡ്ഷോകൾ വീടൂവിട്ട്ടുന്തരം കയറിയിറങ്ങിയുള്ള പ്രചാരണം എന്നിവയിൽ വ്യാപൃത്താണ് ചാന്ദ്നി ചൌകിൽ നിന്നും മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയു്പു ബി

മനോജ് തിവാരിയുടെ നേതൃത്വത്തിൽ ബുരാരിയിൽ റോഡ്ഷോയും ഗൌതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ഡെൽഹിയിൽ പ്രചാരണ പരിപാടികളും നടന്നു

ജെ

ബീഹാറിലെ സീതാമർഹിയിൽ പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യം സുരക്ഷിത കരങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യം ഉചിതമായ തിരിച്ചടിയാണ് നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കും ഉജ്ജല യോജന ആയുഷ്മാൻ ഭാരത് സൌഭാഗ്യ തുടങ്ങിയ പദ്ധതികൾ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഏറെ പ്രയോജനം ചെയ്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു

ഡി എ

വായ്പ തിരിച്ചടയ്ക്കാനാവത്തുരൂടെ ്പേരുകൾ ഉടൻ പുറത്തു വിടണമെന്ന് പാർട്ടി റിസർവ്വ് ബാങ്കിന്നോട് ആവശ്യപ്പെട്ടു

മധുബനി മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചശേഷം ഷക്കീൽ അഹമ്മദ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നുവെന്ന് പട്നയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കോൺഗ്രസ്സ് വക്താവ് പ്രേംചന്ദ് മിശ്ര പറഞ്ഞു മധുബനി മണ്ഡലത്തിനായി മഹാസഖ്യസ്ഥാനാർത്ഥിയായ ബദ്രി പുർവിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതായും ശ്രീ മിശ്ര പറഞ്ഞു

ഐ

ഇതുമായി ബന്ധപ്പെട്ട് മൂന്നുപേരുടെ കാസർകോട്ടും പാലക്കാട്ടുമുള്ള വസതികളിലാണ് പരിശോധന നടത്തിയത്

എസിൽ ചേരുന്നതിന് ഇന്ത്യയിൽ നിന്നും പോയവർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് എൻ ഐ

പരിശോധനയിൽ ഇവരുടെ വസതികളിൽ നിന്നും നിരവധി മൊബൈൽ ഫോണുകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ സിം കാർഡുകൾ സി ഡികൾ തുടങ്ങിയവയും വിവാദ മത പ്രസംഗകൻ സകിർ നായിക്കിന്റെ പുസ്തകങ്ങളും പിടിച്ചെടുത്തു ഡിജിറ്റൽ സാമഗ്രികൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് എൻ ഐ

കൂടുതൽ വിവരങ്ങളുമായി വിന്റോദ്ദ് കു്മാർ

ഈ കാലയളവിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലും കേരള തീരത്തും മത്സൃബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പു നൽകി ആഴക്കടലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ തിരിച്ചെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്

ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ നിരോധിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻമാരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ മികച്ച രീതിയിൽ തുടരുകയാണെന്ന് റെനിൽ വിക്രമ സിൻഹേ അറിയിച്ചു

ദീർഘനേരം ബാലറ്റ് പേപ്പർ എണ്ണിയതുമൂലമുള്ള അസ്വസ്ഥതയാണ് മരൂണകാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് പറ്റഞ്ഞു് നേരത്തെ രാജ്യത്ത് ദേശീയ പ്രാദേശിക പാർലമെന്ററി ത്ത്രെഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൂറ്റു നടന്നിരുന്നു ചെലവ് ചുരുക്കുന്നതിനായിരുന്നു ഇീ ് ൻടപടി

സോജിലായിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ജനറൽ ജെ

ധില്ലൻ രാവിലെ ദേശീയപാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കനത്ത മഞ്ഞ് വീഴ്ചയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാത അടച്ചിട്ടത്

രണ്ടാമത്തെ മത്സരത്തിൽ രാത്രി എട്ട് മണിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ശിവന് പഞ്ചാബ് സർവ്വകലാശാലയുടെ വിജ്ഞാൻ രത്തൻ അവാർഡ് ഉപരാഷ്ട്രപതി എം

ഒ ചെയർമാൻ എന്ന നിലയിൽ അതിശയകരമായ പ്രവർത്തനമാണ് ഡോ

എൻ കരാറിനെതിരായ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടിനെതിരെ യൂറോപ്യൻ യൂണിയൻ യു

ഫെബ്രുവരിയിൽ ബജറ്റ് പാസ്സാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്